പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനിസ് പ്രസിഡന്റ് ഷി ജിൻ പിങും തമ്മിലുള്ള അനൌപചാരിക ചർച്ചകൾക്ക് തുടക്കമായി

എക്സ് മീഡിയ അഴിമതികേസിൽ മുൻധനമന്ത്രി പി

വോട്ടു ബാങ്കു രാഷ്ട്രീയത്തേക്കാൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കാണ് പ്രാധാനൃം നല്കുന്നതെന്ന് ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ അമിത്ഷാ

ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരവും ജയിച്ച് ഇന്ത്യ പരമ്പര

തുടർന്ന് കടലോരത്തെ പ്രക്ഷേത്രാങ്കണത്തിൽ നടന്ന സാംസ്കാരിക പരിപാടിയിൽ ഇരുവരും പങ്കെടുത്തു കൂടുതൽ വിവര്ങ്ങ്ളുമായി അനിൽകുമാർ

ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വിദേശകാര്യമന്ത്രി ചൈനീസ് സുരക്ഷാ ഉപദേഷ്ടാവ് തുടങ്ങിയവർ ഉൾപ്പെടെയുളള ഉന്നതതല സംഘം പ്രസിഡന്റ് ഷീ ജിൻ പിങിനെ അനുഗമിക്കുന്നുണ്ട് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊടൊപ്പം ചർച്ചകളിൽ സംബന്ധിക്കും ന്യൂസ്ഡെസ്ക് ആകാശവാണി

എക്സ് മീഡിയ അഴിമതിയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫയൽ ചെയ്ത കേസിൽ മുൻ കേന്ദ്ര ധനമന്ത്രി പി

തിങ്കളാഴ്ചയ്ക്കകം ഹാജരാക്കാനാണ് പ്രത്യേക ജഡ്ജി അജയ്കുമാർ കുഹാർ വാറണ്ട് പുറപ്പെടുവിച്ചത് ചിദംബരത്തെ ചോദൃം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വേണമെന്ന് എൻഫോഴ്സ്മെന്റ് കോടതിയിൽ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി

എക്സ് മീഡിയ കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ ഫയൽ ചെയ്ത കേസിൽ ചിദംബരം ഇപ്പോൾ തിഹാർ ജയിലിൽ കഴിയുകയാണ്

ജെ

ബ്ലോക്ക് വികസന കൌൺസിൽ തെരഞ്ഞെടുപ്പിന്റായുളള നാമനിർദ്ദേശ പത്രികകളുടെ എണ്ണം വ്യൂര്യിച്ചത് ഇതിന് തെളിവാണെന്നും സംസ്ഥാന ബി ജെ

പുതിയ കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനൻഡ് ഹർഷഗുപ്തയെ അദ്ദേഹം സ്വാഗതം ചെയ്തു നിയന്ത്രണരേഖയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ച് സൈനിക ഉദ്യോഗസ്ഥർ വിലയിരുത്തി

ദോഡാ ജില്ലയിലെ ഭദേർവാ യ്യൂണിവേഴ്സിറ്റി കാമ്പസിൽ സംഘടിപ്പിച്ച യുവജനോത്സവം ഉത്ഘാടനം ചെയ്തുകയായിരുന്നു അദ്ദേഹം കശ്മീരിൽ തീവ്രവാദികൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം എന്ന നിലയിൽ അവിടേക്ക് ആയുധം എത്തിക്കാൻ പാകിസ്ഥാൻ പലവഴികളിലൂടെയും ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കശ്മീർ ജനതയുടെ സ്വൈര്യ ജീവിതത്തെ തടസ്സപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ ഏതു ശ്രമത്തെയും എതിർക്കുമെന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു

ജെ

വോട്ടുബാങ്ക് രാഷ്ട്രീയത്തെക്കാൾ രാജ്യത്തിന്റെ സുരക്ഷയാണ് ബി ജെ

കർഷകരുടെ വായ്പ എഴുതിതള്ളൽ ഗവണ്മെന്റ് ജോലികളിൽ സ്ത്രീകൾക്ക് സംവരണം എന്നിവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ

പ്രകടന പത്രികയെ വിപ്തവകരം എന്നാണ് കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് വിശേഷിപ്പിച്ചത്

നൂറാമത് നൊബേൽ പുരസ്കാരമാണിത് സമാധാനവും അന്താരാഷ്ട്ര സഹകരണവും സ്ഥാപിച്ചെടുക്കാൻ നട്ടിത്തിയ ശ്രമങ്ങൾക്കാണ് പുരസ്കാരം

പൂനെയിൽ മാധൃമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശ്രീമതി

സൂക്ഷ്മ ചെറുകിട വൃവസായത്തിന്റെ വളർച്ചയ്ക്കായി ഈ വർഷത്തെ ബജറ്റിൽ മതിയായ തുക വകയിരുത്തിയിട്ടുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു

ഇൌ വിഷയത്തിൽ ഗവണ്മെന്റ് കൈക്കൊണ്ട തീരുമാനത്തെ രാജ്യമെങ്ങും അംഗീകരിച്ചതായും കേന്ദ്രമന്ത്രി പറഞ്ഞു സാംഗ്ലി കോലാപൂർ വെള്ളപ്പൊക്ക ദുരന്തത്തിൽപ്പെട്ടവർക്ക് യഥാസമയം മതിയായ സഹായം നല്കുമെന്നും ശ്രീമതി

ഗ്രാമീണ മേഖലകളിലെ കുട്ടികൾക്ക് ജവഹർ നവോദയ വിദ്യാലയങ്ങൾ വഴി ഗുണമേന്മയുളള വിദ്യാഭ്യാസ ലഭിക്കാനും നീറ്റ് ഐ ഐ

അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയെന്ന ലക്ഷ്യം കൈവരിക്കാൻ ജെ

വി യിലെയും കെ വി യി ലെയും ഗുണമേന്മയുളള വിദ്യാഭ്യാസം വഴികാട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു

കാർഗിലിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സംരംഭമാണെന്നും മാലിനൃദ്ങൾ കത്തിക്കാതെയും വലിച്ചെറിയാതെയും പുനചംക്രമണ്ണ് പ്പെയ്യാനും ഇതിലൂടെ സാധിക്കുമെന്നും ഡെപ്യൂട്ടി കൂമ്മീഷ്ണർ പറഞ്ഞു

മാലിന്യങ്ങളുടെ സ്വഭാപ്പിന്റുസ്രിച്ച് അവ ജനങ്ങൾ തന്നെ വേർതിരിച്ചു നല്കിയ്ടാൽ പദ്ധതി വിജയകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു

കേസിന്റെ അടുത്തവാദം ഡിസംബർ ഏഴിന് നടക്കും

ഇന്ന് പുലർച്ചെ മംഗളൂരുവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം

മൂന്നാമത്തെയും അവസാനത്തെയും ഏക്ദിനം തിങ്കളാഴ്ച വഡോദരയിൽ നടക്കും

വിരാട് കോലി ഇരട്ട സെഞ്ചറി നേടി പുറത്താകാതെ നിന്നു